എഫ് ജവാൻമാർക്ക് പരിക്ക്

മാസാചരണത്തോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ വിവിധ പരിപാടികൾ

കേരളത്തിന് മുന്നറിയിപ്പ് നല്കിയിരുന്നതായി കേന്ദ്ര ഗവൺമെന്റ്

രാഷ്ട്രപതി രാംനാഥ് ക്കോവ്യീന്ദ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് അനസ്തസിയദെസുമായി നിക്കോഷ്യയിൽ ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് സൈപ്രസ് നിലപാട് അറിയിച്ചത് ഇന്ത്യയും സൈപ്രസും ആഗോള തീവ്രവാദ ഭീഷണി സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു ഐക്യരാഷ്ട്രസഭയിൽ അന്താരാഷ്ട്ര ഭീകരവാദത്തിനെതിരായി സമഗ്രമായ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ധാരണാപത്രങ്ങളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു സുസ്ഥിരമായ ഊർജ്ജവികസനത്തിനായി അന്താരാഷ്ട്ര സൌരോർജ സഖ്യത്തിന്റെ ഭാഗമാകാൻ ശ്രീ

സൈപ്രസിലേക്കുള്ള ത്രിദിന സന്ദർശനത്തിന്റെ അവസാനദിവസമായ ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സൈപ്രസ് സർവ്വകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും

എഫ് സംഘത്തിന് നേരെ ഗ്രനേഡ് ആക്രമണം സംഭവത്തിൽ നാല് ജവാൻമാർക്ക് പരിക്കേറ്റു ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല

പുൽവാമയിൽ ഭീകരവേട്ട നടത്തിയ സൈന്യത്തിന്റെ ഇന്നലെയാണ് യുവാവ് കൊല്ലപ്പെട്ടത് വെടിവെപ്പിൽ ബദ്ഗര ശ്രീനഗർഅനന്തനാഗ് ക്യാമ്പി ഗുണ്ട് ബനിഹാൾ റൂട്ടിലേക്കുള്ള ട്രെയിനുകളാണ് റദ്ദാക്കിയത്

സഹായം റദ്ദാക്കിയ തീരുമാനം വളരെ നേരത്തെ എടുത്താണെന്ന് അമേരിക്കൻ പ്രതിരോധ ക്യേന്ദ്രമായ പെന്റഗൺ അറിയിച്ചു താലിബാനുമായുള്ള അമേരിക്കൻ ഏറ്റുമുട്ടലിന് പാക്കിസ്ഥാനിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശ പ്രകാരം സഹായം റദ്ദാക്കിയത്

എല്ലാ സെപ്റ്റംബർ പോഷകാഹാര മാസമായി ആചരിക്കാൻ പോഷൺ അഭിയാൻ സമിതി തീരുമാനിച്ചിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ് വോയ്സ് പോഷകാഹാരക്കുറവിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വിളർച്ചു മുരടിപ്പ് ഭാരമില്ലായ്മ എന്നിവ പരിഹരിക്കാൻ നിരവധി പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അമ്മമാർ ഗർഭിണികൾ എന്നിവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ

ഇതിനായി എട്ട് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് മുലപ്പാൽ നൽകുക അവരുടെ വളർച്ച നിരീക്ഷിക്കുക ശുചിത്വ നിലവാരം വർദ്ധിപ്പിക്കുക പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക ബാല വിവാഹം തടയുക എന്നീ വിഷയങ്ങളിൽ രാജ്യമൊട്ടാകെ ബോധവത്കരണം നടത്തും രാജ്യത്തെ പതിനൊന്ന് കോടിയോളം വനിതകളിലും കുട്ടികളിലും വിവിധ മന്ത്രാലയങ്ങളുടെ സഹായത്തോട്ടി പദ്ധതിയുടെ ഗുണഫലം എത്തിക്കും

ഭരണഘടന അനുശാസിക്കുന്നതുപോലെ ഇംഗ്ളീഷിൽ ഷെഡ്യൂൾഡ് കാസ്റ്റെന്നോ പ്രാദേശിക ഭാഷയിലെ വിവർത്തനമോ ഉപയോഗിക്കണം ഔദ്യോഗിക രേഖകളിലും ഇടപാടുകളിലും സമാനപ്രയോഗം പിന്തുടരണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

കുട്ടികൾ ഇല്ലാത്ത മാതാപിതാക്കൾക്ക് ശിശുക്കളെ വിൽക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റ് ഡൽഹി ക്രൈം ബ്രാഞ്ചിന് ലഭിച്ച വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം ഇവരെ രഹസ്യമായി പിന്തുടരുകയായിരുന്നു സംഘത്തിന്റെ പക്കൽ നിന്നും നാല് ശിശുക്കളെ പോലീസ് രക്ഷിച്ചു

സംസ്ഥാനത്ത് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്ക് ലെപ്റ്റോസ് ഫൈറോസിസ് എന്ന എലിപ്പനി ബാധിച്ചതായി സംശയുമുണ്ട്

എലിപ്പനി പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ളിൻ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യ വകുപ്പ് അധ്ധികൃത്ർ അറിയിച്ചു

ഇതേ തുടർന്നാണ് കേന്ദ്ര ഭൌമ ശാസ്ത്ര മന്ത്രാലയം വിശദീകരണകുറിപ്പ് ഇറക്കിയത്

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി കെ ബി സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദിമാപൂർ വോഖ കൊഹിമ ഫേഖ് ജില്ലകൾ സന്ദർശിക്കുന്നത് ദുരിത ബാധിതരായ കുടുംബങ്ങളുമായും കേന്ദ്ര സംഘം ആശയം വിനിമയം നടത്തും നാഗാലാൻഡിൽ ജൂലൈ മുതൽ അനുഭവപ്പെടുന്ന കനത്ത മഴയിൽ പന്ത്രണ്ട് പേരാണ് മരിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ് വോയ്സ് ഒഡീഷ ആന്റമാൻ നിക്കോബാർ ദ്വീപ സമൂഹം ആന്ധ്രാ പ്രദേശ് തമിഴ്നാട് പുതുച്ചേരി മഹാരാഷ്ട്രി പശ്ചിമ ബംഗാൾ ഗുജറാത്ത് ഗോവ എന്നീ സ്റ്റ്സ്ഥാനങ്ങളിലെ തീരമേഖലകളിലാണ് പരിശീലനം ന്ടക്കുന്നത് സുനാമി ഉണ്ടാകുമ്പോൾ തീരദേശ മേഖലയിലുള്ളവരെ അടിയന്തരമായി സുരക്ഷിത സ്ഥാനത്തേയ്ക്ക് മാറ്റുകയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യംസുനാമി മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ അത് ബന്ധപ്പെട്ട ജനവാസ മേഖലകളിൽ അറിയിക്കുന്ന്തോടൊപ്പം പ്രദേശവാസികളെ പരിശീലനത്തിലൂടെ സുസജ്ജരാക്കും യുണെസ്കോയുടെ കീഴിലുള്ള ഇന്റർ ഗവൺമെന്റൽ ഓഷ്യനോഗ്രഫി കമ്മീഷനും ഇന്ത്യൻ സമുദ്രത്തിലെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രവും സംയുക്തമായാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്

ഹൈദരബാദിലെ സമുദ്ര പഠന കേന്ദ്രമായ ഇൻകോയ്സിന്റെ കീഴിലാണ് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്

വസതിയിൽ എത്തിയ പ്രധാനമന്ത്രി വാജ്പേയുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു ഫോട്ടോ സഹിതം പ്രധാനമന്ത്രി തന്നെയാണ് ട്ടിറ്ററിലൂടെ സന്ദർശന വിവരം വെളിപ്പെടുത്തിയത്

വാജ്പേയ് ന്യൂഡൽഹിയിൽ അന്തരിച്ചത്

ദീർഘ നാളായി രോഗബാധിതനായിരുന്ന ഹഖാനിയുടെ മരണ വാർത്ത താലിബാൻ വക്താക്കളാണ് ഇന്ന് പുറത്ത് വിട്ടത് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിരവധി സ്ഫോടനങ്ങൾ നടത്തിയ സംഘമാണ് ഹഖാനി ശൃംഖല

ഭരണ്കക്ഷിയായ് തെഹരിക് ഇ ഇൻസാഫ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരിഫ് ആൽവി വിജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത് പ്രതിപക്ഷം സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ദേശീയ അസംബ്ലിക്കു പുറമെ പ്രവിശ്യാ അസംബ്ലിയിലും പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്

ആന്ധ്രപ്രദേശ് നിയമസഭാ സമ്മേളനം വ്യാഴാഴ്ച ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭാം വികസനം നടത്താനായിരുന്നു തീരുമാനം എന്നാൽ ശ്രീനായിഡുവിന്റെ ഭാര്യ സഹോദരൻ നന്ദമുരി ഹരികൃഷ്ണയുടെ മരണത്തെ തുടർന്ന് വികസനം നീട്ടിവെക്കുകയായിരുന്നു

ഓപ്പൺ ടെന്നീസിന്റെ പുരുഷ വിഭാഗം മത്സരത്തിൽ ആസ്ട്രേലിയുടെ ജോൺ മിൽമാൻ കാർട്ടർ ഫൈനലിൽ കടന്നു സ്വിറ്റ്സർലാന്റിന്റെ റോജർ ഫെഡറെ പരാജയപ്പെടുത്തിയാണ് മിൽമാൻ വിജയം കരസ്ഥമാക്കിയത്